ജലസംരക്ഷണത്തിനുള്ള സന്ദേശം നൽകി കൃാച്ച് ദി റെയിൻ പ്രചാരണ പരിപാടിക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി തുടക്കം കുറിക്കും

സജീവം

ശുദ്ധജലത്തിന്റെ പ്രാധാനൃം തിരിച്ചറിയാനും ശുദ്ധജല സംരക്ഷണത്തിന് സുസ്ഥിരമായ നൂതന മാർഗങ്ങൾ അവലംബിക്കാനും ലക്ഷ്യമിട്ടാണ് ദിനാചരണം വെള്ളത്തെ വിലമതിക്കുക എന്നതാണ് ഇക്കൊല്ലത്തെ ലോക ജലദിനത്തിന്റെ മുദ്രാവാകൃം

പ്രധാനമന്ത്രിയുട്ടെ സ്റ്റാന്നിധ്യത്തിൽ കേന്ദ്ര ജൽശക്തി മന്ത്രിയും മധ്യപ്രദ്ദേശീല്ലെയും ഉത്തർപ്രദേശിലെയും മുഖ്യമന്ത്രിമാരും ്തമ്മിൽ കെൻ ബെത്വ ലിങ്ക് പദ്ധതി നടപ്പാക്കാനായുള്ള ചരിത്ര്പ്ടരമായ കരാറിൽ ഒപ്പുവയ്ക്കും നദീസംയോജനവുമായി ബന്ധ്പ്പെട്ട് ദേശീയ കാഴ്ചപ്പാടോടെ നടപ്പാക്കുന്ന പദ്ധതികളിൽ ആദ്യത്തേതാണിത്

ദൌധൻ മേഖലയിൽ അണക്കെട്ട് നിർമ്മിച്ച് കെന്നിൽ നിന്ന് ബെത്വ നദിയിലേക്ക് വെള്ളം കൈമാറും

എവിടെ വീണാലും എപ്പോൾ വീണാലും മഴ വെള്ളം ശേഖരിക്കുക എന്ന പ്രമേയത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യമെമ്പാടും ഗ്രാമീണ നഗര പ്രദേശങ്ങളിൽ ക്യാമ്പയിന് ഇന്ന് തുടക്കമിടുന്നത് ജനപങ്കാളിത്തത്തിലൂടെ താഴേത്തട്ടിൽ വരെ ജലസംരക്ഷണം നടപ്പാക്കുന്നതിനായി ജനമുന്നേറ്റമായി കൃാച്ച് ദി റെയിൻ കാമ്പയിൽ ഉദ്ദേശിക്കുന്നത്

മൂന്നിടത്തും ഒറ്റ ഘട്ടമായി അടുത്ത മാസം ആറിനാണ് വോട്ടെടുപ്പ് പശ്ചിമബംഗാളിലും അസമിലും മൂന്നാം ഘട്ട വോട്ടെടുപ്പിനുള്ള പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനവും ഇന്നാണ്

തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രമുഖ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പശ്ചിമബംഗാളിൽ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുത്തു

ഈസ്റ്റ് മെദ്നിപുരിൽ സംഘട്ടിപ്പിച്ച് റാലിയെ കേന്ദ്ര മന്ത്രി അമിത്ഷാ അഭിസംബോധന ചെയ്ത്യി ്ബി ജെ

അസമിൽ ബി ജെ പി പ്രകടന പത്രിക ദേശീയ അദ്ധ്യക്ഷൻ ജെ

പുതുച്ചേരിയിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പ്രചാരണത്തിനെത്തും

ഉച്ചയ്ക്ക് ശേഷം മൂന്ന് വരെ പത്രിക പിൻവലിക്കാം

അന്തിമ സ്ഥാനാർത്ഥി പട്ടിക ആകുന്നതോടെ ചിഹ്നം അനുവദിക്കാനുള്ള നടപടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കും

ഡി

ഇന്ന് കേരളത്തിലെത്തുന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രുണ്ട്ടു ദിവസം യു ഡി

ഡി എയുടെ തെരഞ്ഞെട്ടൂപ്പ് പ്രിചാരണത്തിനായി കേന്ദ്രമന്ത്രിമാരായ അനുരാഗ്പ് ്ടാക്കൂർ വി മുരളീധരൻ എന്നിവർ സംസ്ഥാനത്തുണ്ട് കേന്ദ്രീമൃത്തി സദാനന്ദ ഗൌഡ ഇന്ന് പ്രചാരണത്തിനായി എത്തും

എ സ്ഥാനാർഥി പി കെ കൃഷ്ണദാസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തോടനുബന്ധിച്ച് യുവമോർച്ച സംഘടിപ്പിച്ച യുവസംഗമം ധനകാര്യ സഹ മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ ഉദ്ഘാടനം ചെയ്തു

പി രാം സ്വരൂപ് ശർമ്മയുടെ നിര്യാണത്തെ തുടർന്ന് റദ്ദാക്കുകയായിരുന്നു

ചുരുങ്ങിയ് കാലയളവിൽ ഏറ്റവും കൂടുതൽ പേർക്ക് കോവിഡ് പ്രതിര്യോധ ്കുത്തിവെയ്പ് നൽകുന്ന രാജ്യങ്ങളിൽ ഇന്ത്യ മുന്നീല്ലാണ്

ഒരാഴ്ചയ്ക്കിടെ ചെന്നൈ കോയമ്പത്തൂർ ചെംഗൽപേട്ട് തിരുവള്ളൂർ കാഞ്ചീപുരംതിരുപൂർ എന്നിവിടങ്ങളിലെ ആശുപത്രികളിൽ കൂടുതൽ പേർ ചികിത്സയ്ക്കായി എത്തി

ബി എസ്

എസ് സൈനികരെ പിൻവലിക്കുന്നത് സംബന്ധിച്ച് യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഓസ്റ്റിൻ ഇന്ത്യ സന്ദർശന വേളയിൽ പറഞ്ഞു

എ ഇ യിലെ അൽ ഐനിൽ നടന്ന പാരാ ഷൂട്ടിംഗ് ലോക കപ്പിൽ ഇന്തൃയുടെ സിംഗരാജ് സ്വർണം നേടി

ഇതോടെ ഇന്ത്യ മെഡൽ പട്ടികയിൽ മൂന്നാം സ്ഥാനത്തെത്തി

ഇന്ത്യ ലെജന്റ്സ് ക്യാപ്റ്റനായ സച്ചിൻ ടെൻഡുൽക്കർ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മൂന്നാമനായി

ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമിൽ ന്യൂന്ന് ലീഭിച്ച മുന്നറിയിപ്പിനെ തുടർന്നാണ് നിർദ്ദേശം നൽകിയത് സ്മൃയ്ബന്ധിതമായി സൈബർ സുരക്ഷാ ഓഡിറ്റ് നടത്താനും റിപ്പോർട്ടുകൾ മന്ത്രാലയത്തിന് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്